ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ആറാംഘട്ടം നാളെ ക്രമീകരണങ്ങൾ പൂർത്തിയായി

എൽ ക്രിക്കറ്റ് ഫൈനൽ നാളെ ചെന്നൈ സൂപ്പർകിങ്ങ്സും മുംബൈ ഇൻഡ്യൻസും ഏറ്റുമുട്ടും

കൂടുതൽ വിവരങ്ങളുമായി കൃഷ്ണ

കേന്ദ്രമന്ത്രിമാരായ രാധ മോഹൻസിങ് ഹർഷവർധൻ മനേക ഗാന്ധി നരേന്ദ്രസിംഗ് തോമർ കൃഷൻ പാൽ ഗുർജർ റാവോ ഇന്ദ്രജിത് സിങ് ഡൽഹി ബി ജെ

അധ്യക്ഷൻ മനോജ് തിവാരി ജാർഖണ്ഡ് ബി ജെ

അധ്യക്ഷൻ ലക്ഷ്മൺ ഗിലുവ ക്രിക്കറ്റ് താരം ഗൌതം ഗംഭീർ പ്രഗൃ സിങ് താക്കൂർഎന്നിവരാണ് ബി ജെ

മുതിർന്ന കോൺഗ്രസ് നേതാക്കളായ ഷീല ദീക്ഷിത് ജ്യോതിരാദിത്യ സിന്ധൃ ബോക്സർ വിജേന്ദർ സിങ് ക്രിക്കറ്റ് താരം കീർത്തി ആസാദ് ഗീത കോര സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവ് എന്നിവരും ജനവിധി തേടും പങ്കജ് ഗുപ്ത അതിഷി ദിലീപ് പാണ്ഡേ രാഘവ് ചന്ദ്ര എന്നിവരാണ് ആം ആദ്മി സീറ്റിൽ മത്സരിക്കുന്നത്

ഇതോടൊപ്പം ഹിമാചൽ പ്രദേശിലെ നാല് സീറ്റുകളിലും ജാർഖണ്ഡിലും ഛണ്ഡിഗഡിലും മൂന്ന് സീറ്റുകളിലും തെരഞ്ഞെടുപ്പ് നടക്കും

വിവിധ രാഷ്ട്രീയ പാർട്ടികളിലെ പ്രമുഖ നേതാക്കളെല്ലാം ഇന്നും പ്രചാരണറാലികളിൽ സജീവമാണ്

ജെ പി ഗവൺമെന്റ് വീണ്ടും അധികാരത്തിൽ വന്നാൽ ജലവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾക്ക് പ്രത്യേക മന്ത്രാലയം രൂപീകരിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി യു

യിലെ സോൻഭദ്ര ജില്ലയിൽ നടന്ന പൊതുയോഗത്തിൽ പറഞ്ഞു ജാർഖണ്ഡിലെ പകൂറിൽ നടക്കുന്ന പൊതുസമ്മേളനത്തെ ബി ജെ

കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽഗാന്ധി ഷാജപൂർ ധാർ ഖാർഗോർ എന്നിവിടങ്ങളിൽ പ്രസംഗിച്ചു

വി എം വിവിപാറ്റ് എന്നിവയുടെ പ്രവ്വർത്തുനം വോട്ടെണ്ണെൽ എന്നിവയിൽ ഉദ്യോഗസ്ഥർക്ക് പരിശീലനം നൂൽകി

ഡൽഹി വടക്ക് കിഴക്കൻ മണ്ഡലത്തിൽ കോൺഗ്രസ് സീറ്റിലാണ് ശ്രീമതി

ഒരു സർവ്വേയുടെ ഫലങ്ങളെന്ന വ്യാജേനയുള്ള കണക്കുകൾ റെക്കോഡ് ചെയ്ത ഫോൺ കോളുകളായി ജനങ്ങളിലെത്തുന്നതായി ശ്രീമതി ദീക്ഷിതിന്റെ ഏജന്റ് റോമില ധവാൻ കത്തിൽ പറയുന്നു വിഷയത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അന്വേഷണം നടത്തണമെന്നും ഇത്തരം കോളുകൾ തടയുന്നതിനുള്ള നടപടി സ്വീകരിക്കണമെന്നും അവർ പറഞ്ഞു

ജെ

ഡൽഹിയിൽ ബിജെ പി ആസ്ഥാനത്ത് പാർട്ടി മുതിർന്ന നേതാവും ഛത്തീസ്ഗഡ് മുൻമുഖൃമന്ത്രിയുമായ രമൺ സിങിന്റെ സാന്നിദ്ധ്യത്തിലാണ് അരുൺ ബക്ഷി ഇന്ന് ബി ജെ പി യിൽ ചേർന്നത്

ബോയിങ്ങിന്റെ ആസ്ഥാനമായ അരിസോണയിലെ നിർമാണ കേന്ദ്ര ത്തിൽ നടന്ന ചടങ്ങിൽ ആദ്യ അപാഷെ ഹെലിക്കോപ്റ്റർ ഇന്തൃൻ വ്യോമസേന എയർ മാർഷൽ എ

അപാഷെ പറപ്പിക്കുന്നതിനുള്ള പ്രത്യേക പരിശീലനം ഏതാനും വ്യോമസേന പൈലറ്റുമാർ യുഎസ് സേനാതാവളത്തിൽ നിന്ന് അടുത്തിടെ നേടിയിരുന്നു

ഇന്തൃൻ വ്യോമസേനയുടെ കരുത്ത് വർദ്ധിപ്പിക്കുന്നതിന് പുറമെ സേനയുടെ സൂക്ഷ്മ ആക്രമണങ്ങൾക്കും ഹെലികോപ്റ്റർ സഹായകമാകും

കൂടുതൽ വിവരങ്ങളുമായി കൃഷ്ണ

എല്ലാ പൌരൻമാർക്കും മാന്യമായ ജീവിത സൌകര്യം ഉറപ്പുവരുത്താനുള്ള വികസന പ്രവർത്തനങ്ങൾക്കാണ് ഇന്തൃ സാങ്കേതികവിദൃ പ്രയോജനപ്പെടുത്തുന്നതെന്ന് രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് പറഞ്ഞു ദേശീയ സാങ്കേതിക ദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങൾക്ക് ആശംസകൾ നേർന്നു

ദേശീയ പുരോഗതിക്കായി സാങ്കേതിക വിദ്യയുടെ ശക്തി പ്രയോജനപ്പെടുത്താൻ ഇനിയും പരിശ്രമിക്കണമെന്ന് പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു ആണവപരീക്ഷണം നടത്തുന്നതിൽ അന്നത്തെ പ്രധാനമന്ത്രി എ

വാജ്പേയ്ക്കുണ്ടായിരുന്ന ധൈര്യത്തെയും ദേശസ്നേഹത്തേയും പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുസ്മരിച്ചു ന്യൂസ് ഡെസ്ക് ആകാശവാണി

ഇതിനെ ചോദൃം ചെയ്ത് ഫയൽ ചെയ്ത ഹർജികൾ ത്രീർപ്പാക്കിക്കൊണ്ടാണ് കോടതി നിർണ്ണായക വിധി പ്രസ്താവിച്ചത്പു ജ്ഡ്ജിമാരായ യു

ലളിത് ഡി വൈ ചന്ദ്രചൂഡ് എന്നിവർ ഉൾപ്പെട്ട ബെഞ്ചിന്റേതാണ് വിധി സംവരണം ഭരണത്തിന്റെ കാര്യക്ഷമതയെ ബാധിക്കില്ലെന്ന് കോടതി അഭിപ്രായപ്പെട്ടു

കൂടുതൽ വിവരങ്ങളുമായി കൃഷ്ണ

എൽ ക്രിക്കറ്റിൽ നാല് വർഷത്തിനുശേഷം വീണ്ടും മുംബൈ ഇന്ത്യൻസും ചെന്നൈ സൂപ്പർ കിങ്ങ്സും ഫൈനലിൽ ഏറ്റുമുട്ടുന്നു രണ്ടാം കാളിഫയറിൽ ഡൽഹി ക്യാപിറ്റൽസിനെ ആറു വിക്കറ്റിന് തോൽപ്പിച്ചാണ് ചെന്നൈ മുംബൈയ്ക്കെതിരായ കലാശപ്പോരിന് യോഗൃത നേടിയത് ചെന്നൈയ്ക്കിത് എട്ടാം ഫൈനലാണ്

അന്ന് മുംബൈയ്ക്കായിരുന്നു ജയം

ന്യൂസ് ഡെസ്ക് ആകാശവാണി

ജെ പി രംഗത്ത് കോൺഗ്രസ് നേതാവ് നവ്ജ്യോത് സിങ് സിദ്ദുവിനെതിരെയാണ് ബി ജെ പി വക്താവ് സംബിത് പത്ര രംഗത്തെത്തിയത് ന്യൂഡൽഗിയിലെ മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പ്രധാനമന്ത്രിക്കെതിരെ അധിക്ഷേപമുന്നയിച്ച ശ്രീ

അഡീഷണൽ ചീഫ് സെക്രട്ടറി രാജീവ് സോറയാണ് അന്വേഷണം നടത്തുക ഉന്നത ഉദ്യോഗസ്ഥരുമായും ശ്രീ

വനംമന്ത്രി പരിമൾ സുക്ലാബാദിയ അഡീഷണൽ ഡി ജി പി മുകേഷ് അഗർവാൾ എന്നിവരും സംഘർഷ മേഖല സന്ദർശിക്കുന്നുണ്ട്

ഒമ്പതു മുസ്തിം ലീഗ് പ്രവർത്തകർക്കെതിർേയും ഒരു സി

ജില്ലാ കളക്ടറുടെ നിർദ്ദേശപ്രകാർമാണ് കേസ് രജിസ്റ്റർ ചെയ്തത് അതിനിടെ ധർമ്മടം മണ്ഡല്ത്തിൽ കള്ളവോട്ട് നടന്നുവെന്ന പരാതിയിൽ കൂടുതൽ അന്വേഷണം ആർട്ടിച്ചിട്ടുണ്ട്